ജെ പി ദേശീയ അധൃക്ഷ്നായി ജെ

നിർഭയ കേസിൽ വധശിക്ഷയ്ക്കെതിരെ പ്രതി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി

ഗുവാഹത്തിയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യാ ഗെയിംസിലെ നീന്തൽ മത്സരങ്ങളിൽ പശ്ചിമബംഗാളിനും കർണ്ണാടകയ്ക്കും നാല് വീതം സ്വർണ്ണം

ന്യൂഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടന്ന പരീക്ഷ പേ ചർച്ചയുടെ ഭാഗമായി വിദ്യാർത്ഥികളോടും അധ്യാപകരോടും രക്ഷകർത്താക്കളോടുംക്കു സംവദിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്കും പുതിയ പ്രതീക്ഷകളിലേക്കും നയിക്കുക എന്ന ചുമതല പുതുതലമുറ യ്ക്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഔദ്യോഗിക ജീവിതത്തിനൊപ്പം രാഷ്ട്രത്തിനായി സംഭാവന ചെയ്യുകയും ഏവരുടേയും കടമയാണ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുക മാത്രമല്ല പ്രധാനം പുതിയ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ അറിയാനുമുള്ള മാർഗ്ഗമാണ് വിദ്യാഭ്യാസം

നരേന്ദ്ര മോദി രാജ്യത്തിന്റെ പ്രതീക്ഷകളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി പരീക്ഷാ ഭീതിയും മാനസിക പിരിമുറുക്കവും ഒഴിവാക്കി പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക ലക്ഷ്യമിട്ടാണ് പരീക്ഷാ പേ ചർച്ച സംവാദ പരിപാടിയുടെ മൂന്നാം ഭാഗം സംഘടിപ്പിച്ചത്

ജെ പി ദേശീയ അധ്യക്ഷനായി ശ്രീ

നദ്ദയെ തെരഞ്ഞെടുത്തു

ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ശ്രീ

നദ്ദ കഴിഞ്ഞ വർഷം ജൂല്ലെ മൂതൽ ബി ജെ

മറ്റാരും പത്രിക സമർപ്പിക്കാത്തതിനാൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുകയായിരുന്നു

ജെ പി ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ജെ

വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ശ്രീ

ജെ പിയെ പുതിയ ഉയരങ്ങളിലേയ്ക്ക് എത്തിക്കുമെന്ന് ശ്രീ മോദി തന്റെ ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

ജെ പി ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ

പി നദ്ദയെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ജനങ്ങളാൽ തിരസ്ക്കരിക്കപ്പെട്ട ചില പാർട്ടികളാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി ബ്ബി ജെ പിക്ക് വളരാൻ സാധിച്ചത് വലിയ നേട്ടമാണെന്നും ശ്രീ

ജെ പി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു

അഭയ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായിരുന്നു ബ്രജേഷ് താക്കൂർ പോക്സോ നിയമപ്രകാരമുള്ള കേസിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി സൌരഭ് കുൽശ്രേഷ്ഠയാണ് വിധിന്യായം പുറപ്പെടുവിച്ചത്

കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രായപൂർത്തിയായിരുന്നില്ല എന്ന് കാണിച്ച് ഇയാൾ നൽകിയ ഹർജി നേരത്തേ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു

ഭാനുമതി അശോക് ഭൂഷൺ എ

ബൊപ്പണ്ണ എന്നിവരടങ്ങിയ ബഞ്ചാണ് ഡൽഹി ഹൈക്ക്ക്ടോടത് ഉത്തരവ് ശരിവച്ചത് അടുത്ത മാസം ഒന്നിനാണ് നിർഭ്യം കേസിലെ പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുന്നത്

ചീഫ് ജസ്റ്റിസ് എസ്

ഒയാണ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിച്ച ഒരാഴ്ച ദൈർഘ്യമുള്ള പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ജമ്മുവിൽ എത്തിയതായിരുന്നു അദ്ദേഹം

ജമ്മുകാശ്മീർ ഗവർണർ ഭരണത്തിലായതിനുശേഷം വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടിയതായും കേന്ദ്ര മന്ത്രി പറഞ്ഞു ജമ്മുകാശ്മീർ സന്ദർശനം നടത്തുന്ന രണ്ടാമത് മന്ത്രി സംഘത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ പിയൂഷ് ഗോയൽ സന്ദർശനം നടത്തിയത് വിവിധ ജില്ലകൾ സന്ദർശിച്ച സംഘം പൊതു യോഗങ്ങളിലും ഉദ്ഘാടന ചടങ്ങുകളിലും പങ്കെടുത്തു

പിയൂഷ് ഗോയൽ പറഞ്ഞു

ആഗോളും നിക്ഷേപക സംഗമത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ സംസ്കരിക്കുകയായിരുന്നു അദ്ദേഹം

ഏറ്റുമുട്ടലിൽ വാചി സിയാനപ്പോറാ പ്രദേശത്ത് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകായിരുന്നു തുടർന്ന് സുരക്ഷാസേന ഇവരെ വധിച്ചു

ഹിസ്ബുൾ മുജാഹിദ്ദീന്റെ ജില്ലാ കമാണ്ടർ വധിക്കപ്പെട്ട ഭീകരരിൽ ഉൾപ്പെടുന്നതായാണ് സുരക്ഷാസേന നൽകുന്ന വിവരം

ശർമ ഒലിയും നാളെ സ്ടിയൂക്തമായി ജോഗ് ബാനി ബിരാട് നഗർ മേഖലയിൽ സ്ഥാപിച്ച് രൂൺടാമത് സംയോജിത ചെക്ക് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്യും